ഒന്നാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിന് മികച്ച പ്രകടനം

ദേശീയ ദുരന്ത നിരവാരണ സേന സംസ്ഥാന ദുരന്ത നിവാരണ സേന എസ് എസ് ബി ഇൻഡോ ടിബറ്റൻ അതിർത്തി സേന സൈനൃം എന്നിവയുടെ നേതൃത്വത്തിലാണ് രക്ഷാ പ്രവർത്തനം പുരോഗമിക്കുന്നത് കരസേനയും സംസ്ഥാന ആരോഗ്യവകുപ്പും എല്ലാവിധ ആരോഗ്യ സൌകര്യങ്ങളും ആമ്പുലൻസുകളും സജ്ജമാക്കിയിട്ടുണ്ട് വ്യോമസേനയുടെ സഹായത്തോടെയാണ് ദേശീയ ദുരന്ത നിവാരണ സേന സംഭവ സ്ഥലത്ത് എത്തിച്ചേർന്നത്

ദുരന്തത്തിൽ ഇരയായവരേയും കേന്ദ്രസർക്കാരിനേയും ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അനുശോചനം അറീയിച്ചു ഉത്തരാഖണ്ഡിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിൽപ്പ് ഇന്ത്യ ആവശ്യപ്പെട്ടാൽ പങ്കാളികളാകുമെന്നും യു എൺ സ്ക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് വ്യക്തമാക്കി

രാജ്യസഭയിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൻമേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയുകയായിരുന്നു പ്രധാനമന്ത്രി രാജ്യം ലോകത്തെ ഔഷധ നിർമ്മാണ പ്രക്രിയയുടെ സിരാ കേന്ദ്രമായി മാറി

രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തിന്റെ ശക്തി തെളിയിക്കപ്പെട്ട സമയമാണിതെന്നും പ്രധാനമന്ത്രി പ്രത്യേകം ഓർമ്മിപ്പിച്ചു രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി അറിയിച്ച ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രപതിയുടെ പ്രസംഗം കേൾക്കാൻ സഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ എന്ന് പറഞ്ഞു ഇന്ത്യ അവസരങ്ങളുടെ നാടാണ് എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങൾ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഊർജ്ജവും ചടുലതയും രാജ്യത്തിനുണ്ടെന്നും സൂചിപ്പിച്ചു വിഖ്യാത എഴുത്തുകാരി മൈഥിലി ശരൺ ഗുപ്തയുടെ വരികൾ ഉദ്ധരിച്ച് എല്ലാ വെല്ലുവിളികളേയും അതിജീവിച്ച് ആത്മനിർഭർ ഭാരതത്തിനായി യത്നിക്കാൻ പ്രധാനമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു

വിശദാംശങ്ങളുമായി അമൃത

കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ജി

വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ കൊണ്ടുവന്ന ഓർഡിനൻസിന് ബദലായാണ് ബിൽ അവതരിപ്പിക്കുന്നത് കേന്ദ്ര പാർപ്പിട നഗരകാര്യ മന്ത്രി ഹർദ്ദീപ് സിംഗ് പുരിയും ദേശീയ തലസ്ഥാനമായ ഡൽഹിക്കായുള്ള പ്രത്യേക നിയമത്തിന്റെ രണ്ടാം ഭേദഗതി ബില്ലും ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും അതേസമയം രാഷ്ട്രപതിയുടെ പ്രസ്യംഗത്തിൻമേലുളള ചർച്ച ലോക്സഭയിൽ ഇന്നും തുടരും

ഗ്യാസ് പൈപ്പ്ലെൻ ശൃംഖലയുടെ വികസനവും പ്രകൃതിവാതകങ്ങളുടെ വില കുറയ്ക്കുന്നതും ഈ ലക്ഷ്യത്തിലെത്താൻ സഹായിക്കും

പശ്ചിമബംഗാളിലെ അടിസ്ഥാന സൌകര്യവികസന ത്തിൽ നിർണായകമായ പദ്ധതികൾ നാടിന് സമർപ്പിച്ചു കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ജി ആക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതായും ശ്രീ ഗഡ്കരി അറിയിച്ചു

കേന്ദ്ര വ്യോമയാന മന്ത്രി ഹർദ്ദീപ് സിങ് പുരി റായ്പൂരിൽ മാധ്യമങ്ങളെ അറിയിച്ചതാണിക്കാര്യം

ഭാരത് യോഗ വിദ്യ കേന്ദ്ര യോഗശാലയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു

ശരീരത്തിനെയും മനസിനെയും ഒര്യേപ്പോലെ ആരോഗ്യമുള്ളതാക്കി തീർക്കാൻ യോഗയ്ക്ക് സാധിക്കുമെന്ന് രാഷ്ട്രപതി പറഞ്ഞു

സംസ്ഥാനങ്ങളിൽ ഇന്നലെ വാക്സിൻ കുത്തിവയ്പ് നടന്നു

മുഖാവരണം ധരിച്ചും സാമൂഹികാകലം പാലിച്ചും കൃത്യമായ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും സ്കൂളുകളുടെ പ്രവർത്തനം

ആണവ പദ്ധതി സമാധാനപരമാണെന്ന് അവകാശപ്പെടുന്ന ഇറാൻ സമ്പൂഷ്ട യുറേനിയം ശേഖരം വർദ്ധിപ്പിക്കുകയാണ്

ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാന പാദത്തിൽ അമേരിക്കയുടെ വിദേശനയം രൂപീകരിക്കുന്നതിൽ അദ്ദേഹം പ്രമുഖ പങ്ക് വഹിച്ചു